ശതമാനത്തോളം പോളിംഗ് വോട്ടെടുപ്പ് പൊതുവെ സമാധാന പരം

വിജയപ്രതീക്ഷയുമായി കേരളത്തില്ലെ ്മൂന്നു മുന്നണികളും

ചരിത്രവിജയം നേടുമെന്ന് മുഖ്യ്മ്രന്തി യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് പ്രൂതിപക്ഷ നേതാവ് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് പ്ലി ഉജ്ഞപി

തെരഞ്ഞെടുപ്പുകളും പൂർത്തിയായി പശ്ചിമ ബംഗാളിൽ മൂന്നാംഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്

പ്രചാരണം ചെറുക്കണമെന്ന് ബി ജെ

പരീക്ഷ ആയാസരഹിതമാക്കാൻ വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നടത്തുന്ന പരീക്ഷാ പെ ചർച്ച നാളെ

ഒറ്റഘട്ടമായാണ് ഇന്ന് വോട്ടെടുപ്പ് നട്ടന്നത്

അസമിൽ മൂന്നാമത്തെയും അവസാനുള്ളത്ത്യും ഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് നടന്നത്

ഇതിനു പുറമെ തമിഴ്നാട്ടിലെ കന്യാകുമ്മാരി കേരളത്തിലെ മലപ്പുറം എന്നീ ലോകസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും ഇന്നു നടന്നു

സുശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തി യിരുന്നത്

മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത് പ്രവചനം അസാധ്യമാകുംവിധം എൽ ഡി എഫ്

ഡി എഫ്

ഡി

സുശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നു

കോവിഡ് മാർഗ്ഗരേഖ പാലിച്ചായിരുന്നു വോട്ടെടുപ്പ്

സംസ്ഥാനത്ത് തുടർഭരണം ഉണ്ടാവുമെന്ന് ഭരണത്തിലുള്ള ഇടതു മുന്നണിയും ജനം മാറ്റത്തിനായി വിധിയെഴുതിയെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയും അവകാശപ്പെടുമ്പോൾ കേരള ത്തിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുമെന്ന് ബി ജെ

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ വോയിസ് ഇടതുപക്ഷത്തിന് തുടർഭരണം ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂരിൽ ധർമ്മടം മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളിലാണ് വിശ്വാസം ജനങ്ങൾ മുന്നണിക്കൊപ്പമുണ്ട്

അതേസമയം ഐത്രിഹാസിക വിജയമാണ് യു

എഫിനെ കാത്തിരിക്കുന്നതെന്ന് പ്രപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട് മണ്ഡലത്തിൽ പ്പോട്ട് ചെയ്തശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

സർക്കാരീനെതിരെ ഉന്നയിച്ച ആരോപണ ങ്ങൾ ജനങ്ങൾ വിശ്വാസിത്തിൽ എടുത്തത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് പ്രദൃശ്ശീ

കേരളത്തിൽ എൻ ഡി എയുടെ ശക്തമായ സാന്നിധൃം ഉറപ്പിക്കുന്ന വിധിയെഴുത്താണ് ഇന്ന് നടന്നതെന്ന് ബി ജെ

സംസ്ഥാന അധ്യക്ഷൻ കെ

കോഴിക്കോട് മൊടക്കല്ലൂരിൽ വോട്ട് രേഖപ്പെടുത്തിയശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോന്നിയിലും മഞ്ചേശ്വരത്തും വിജയിക്കുമെന്ന് അദ്ദേഹം ശുഭ പ്രതീക്ഷ പ്രകടിപ്പിച്ചു

സംസ്ഥാനത്ത് എൻ

എ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നുംശ്രീ

അഴിമതി രഹിതവും പ്രീണന മുക്തവുമായ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഉചിതമായ സഖ്യത്തെ തെരഞ്ഞെടുക്കേണ്ട സമയമാണിതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ നേരത്തെ മലയാളത്തിൽ ട്വീറ്റ് ചെയ്തിരുന്നു

വിശദാംശങ്ങളുമായി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസന്റ് ചേരുന്നു

ജെ പി പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു

ജെ

കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ വിർച്ചൽ രീതിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

നിലവിൽ ഏഴ് ലക്ഷത്തിലധികം പേരാണ് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്